ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവ്വഹിച്ചു പ്രധാനമന്ത്രി ഉച്ചകഴിഞ്ഞ് കൊച്ചിയിലെത്തും

സി പിയിൽനിന്നു രാജിവച്ച പാലാ എം

എ മാണി സി കാപ്പൻ യു ഡി എഫിൽ

ചെന്നൈ മെട്രോ റയിൽ പദ്ധതിയുടെ രണ്ടാം ഘട്ടം ചെന്നൈ ബീച്ച് അത്തിപ്പട്ട് റെയിൽവേ വൈദ്യുതവൽക്കരണ പരിപാടി കല്ലണ കനാൽ വിപുലീകരണം എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി നിർവഹിച്ചത്

കൂടാതെ തയ്യൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഡിസ്കവറി പ്രോജക്ട് ശിലാസ്ഥാപനത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും

പ്പൊതു്മേഖലാ സ്ഥാപനമായ ബി

സി എല്ലിൻറെ പ്രൊഷല്ലീൻ ഡെറിവേറ്റീവ് പെട്രോ കെമിക്കൽ പ്രൊജക്ട് വ്ല്ലിങ്ടൺ ഐലൻറിലെ റോ റോ വെസൽ കൊച്ചി തുറമുഖ്യത്തെ അന്താരാഷ്ട്ര ക്രൂസ് ടെർമിനൽ സാഗരിക കപ്പൽശാല്യിലെ നോളജ് ആൻറ് സ്കിൽ ഡവലപ്പ്മെൻറ് സെൻറർ വിജ്ഞാൻ സാഗർ എന്നിവ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും കൊച്ചി തുറമുഖത്ത് എഫ്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

ഉച്ചയ്ക്ക് രണ്ടേമുക്കാലോടെ ചെന്നൈയിൽ നിന്ന് കൊച്ചി ഐ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

എസ് ഗരൂപ്പിക് വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങും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

ഏപ്രിൽ രണ്ടാം വാരത്തിന് മുൻപ് തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് എൽ

എഫും യു ഡി

സന്ദർശനം പൂർത്തിയാക്കി നാളെയാണ് മുഖ്യതെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ അടങ്ങുന്ന സംഘം ദില്ലിക്ക് മടങ്ങുന്നത്

ജെൻഡർപാർക്കും വേൾഡ് ട്രേഡ് സെന്ററും ലോക ജനശ്രദ്ധ ആകർഷിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മന്ത്രി കെ

വനിതാശാക്തീകരണവും തൊഴിലവസരവും ദാരിദ്ര്യലഘൂകരണവും ലക്ഷ്യമിട്ട് കൂടുതൽ സാമൂഹൃ സംരംഭങ്ങൾ ജെൻഡർ പാർക്കിൽ ഒരുക്കുമെന്ന് ആരോഗൃ മന്ത്രി പറഞ്ഞു

സമാപന സമ്മേളനം രണ്ടുമണിക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഓൺലൈനിലൂടെ നിർവഹിക്കും

മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ജലപാത ഗതാഗതത്തിനു തുറന്നു കൊടുക്കും

എ പാലാ എം

എ മാണി സി കാപ്പൻ എൻസിപിയിൽനിന്നു രാജിവച്ചതായി പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ടി

കാപ്പൻ പോകുന്നത് പാർട്ടിക്ക് ക്ഷീണമാണെന്നും അദ്ദേഹത്തിന്റേത് വൃക്തിപരമായ തീരുമാനമാണെന്നും സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു പാലായിൽ ഇടതുമുന്നണി ജയിക്കുമെന്നും ശ്രീ പീതാംബരൻ പറഞ്ഞു മാണി സി കാപ്പൻ ഇടതു മുന്നണി വിട്ടത് ദൌർഭാഗൃകരമാണെന്ന് മന്ത്രി എ

തനിക്കൊപ്പമുള്ളവർ പാർട്ടി സ്ഥാനങ്ങളും കോർപ്പറേഷൻ ബോർഡ് സ്ഥാനങ്ങളും ഇന്ന് രാജി വയ്ക്കുംപൂ എം എൽ സ്ഥാനം രാജിവയ്ക്കില്ലെന്നും മാണി സി കാപ്പന്റ് പെട്ഞു

കാപ്പൻ എൻസിപി വിട്ട് മാണി ് സികാപ്പൻ യുഡിഎഫിലേക്ക് വരുന്നത് മുന്നണിയുടെ രാഷ്ട്രീയ വിജയമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കാപ്പൻ പാലായിൽ തന്നെ മത്സരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കാപ്പന്റെ എംഎൽഎ സ്ഥാനം സംബന്ധിച്ച് ധാർമിക പ്രശ്നം പറയുന്ന എൽഡിഎഫിന് അതിന് അവകാശമില്ല യുഡിഎഫ് വിട്ട് പോയപ്പോൾ റോഷി അഗസ്റ്റിനും എൻ

കാപ്പൻ പോയത് സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കാനെന്നും ശ്രീ

ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ പ്രാർത്ഥനാ ചടങ്ങുകൾ ഇത്തവണ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും നടത്തുക

ഉച്ചയ്ക്ക് ശേഷം മൂന്നിനാണ് ഉദ്ഘാടന സമ്മേളനം

സുധാകരൻ സ്ഥലം മാറിയ ശേഷവും വിരമിച്ച ശേഷവും ജീവനക്കാർ സർക്കാർ കാർട്ടേഴ്സ് വിട്ടു നല്കാത്ത പ്രവണത മാറ്റേണ്ടതുണ്ടെന്ന് പൊതുമരാമത്ത് രജിസ്ട്രേഷൻ മന്ത്രി ജി

ഇതിനു വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിച്ചതായും വലിയ രീതിയിലുള്ള നിർമാണമാണ് ജില്ലയിൽ പൊതുമരാമത്ത് കെട്ടിട വിഭാഗം നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു

ജില്ലാ അതിർത്തിയായ നെല്ലാപ്പാറയിൽ യാത്രയെ ജില്ലയിലേക്ക് വരവേറ്റു

വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി വൈകിട്ട് കോട്ടയത്ത് ഇന്നത്തെ പര്യടനം സമാപിക്കും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

ഐ ജനറൽ സെക്രട്ടറി ഡി

മന്ത്രിമാരായ ജെ മേഴ്സിക്കുട്ടിയമ്മ പ്രൊഫ സി രവീന്ദ്രനാഥ് എന്നിവരാണ് അദാലത്തിന് നേതൃത്വം നൽക്കുന്നത്

എല്ലിൽ ഇന്ന് രണ്ട് മൽസരം